ഒരുങ്ങി

ഛണ്ഡീഗഢിൽ നാളെ നടക്കുന്ന ചടങ്ങിൽ ജെജെപി നേതാവ് ദുഷ്യന്ത് ചൌട്ടാല ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും

ജനനായക് ജനതാ പാർട്ടി ഉൾപ്പെടുന്ന സഖ്യ ഗവൺമെന്റിനാണ് ഖട്ടർ നേതൃത്വം നൽകുന്നത്

ഹരിയാന ലോഘിത് പാർട്ടിയിലെ ഏക എം

മന്ത്രിസഭയിൽ ഒരു ഉപമുഖൃമന്ത്രി സ്ഥാനം ഉണ്ടായിരിക്കുമെന്നും അത് സഖൃകക്ഷിയായ ജനനായക് ജനതാപാർട്ടിയക്ക്കാട്ടീരിക്കുമെന്നും കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

മുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ള അധികാര സ്ഥാനങ്ങൾ തുല്യമായി പങ്കിടണമെന്ന് ശിവസേന ആവശ്യപ്പെട്ടു ഇക്കാര്യം ബിജെപി രേഖാ മൂലം എഴുതി നൽകണമെന്നുമാണ് ശിവസേനയുടെ നിലപാട്

എ മാരുടെ യോഗം ശിവസേനാ അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ വിളിച്ചുചേർത്തു പുതുതായി രൂപീകരിക്കുന്ന ഗവൺമെന്റിൽ തുല്യപങ്കാളിത്തം ഉറപ്പാക്കാൻ ബിജെപി ഇക്കാര്യം എഴുതി നൽകണമെന്ന് ശിവസേന ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ള അധികാര സ്ഥാനങ്ങൾ തുല്യമായി പങ്കിടണമെന്നാണ് ശിവസേനയുടെ ആവശ്യം

അതേസമയം മഹാരാഷ്ട്ര കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബാലാ സാഹിബ് തോറാത്ത് എൻ സി പി അധ്യക്ഷൻ ശരത് പവാറുമായി ബരാമതിയിൽ കൂടിക്കാഴ്ച നടത്തി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കൃാർചുഴലിക്കാറ്റിന്റെ പ്രഭാവത്തിൽമഹാരാഷ്ട്ര ഗോവ കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തീരദേശ ജില്ലകളിൽ കനത്ത മഴതുടരുന്നു

മഹാരാഷ്ട്രയിലെ തീരദേശജില്ലകളായ രത്നഗിരി സിന്ധുദുർഗ്ഗ് എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം മുന്നറിയിപ്പ് നൽകി

ജനങ്ങളുടെ പ്രാഥമിക അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കാനാണ് നരേന്ദ്ര മോദി ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു ആരോഗ്യ ഭവന സാമ്പത്തിക രംഗങ്ങളിൽ പാപ്പെട്ടവർക്കായി ഗവൺമെന്റ് വിവിധ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളാണ് നടപ്പാക്കിയത് അഹമ്മദാബാദിലെ ഏറ്റവും നീളമേറിയ മേൽപ്പാത കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്തു കൂടാതെ നഗരവികസനത്തിനുള്ള വിവിധ പദ്ധതികളുടെ ശിലാസ്ഥാപനവും നിർവ്വഹിച്ചു

ഹിന്ദു സിഖ് ജൈന വിഭാഗങ്ങളിലെ വിശ്വാസികൾ ഒരുമിച്ച് ആഘോഷിക്കുന്ന പ്രത്യേകതയും ദീപാവലിക്കുണ്ട്

ദയാമയമായ വാക്കിലൂടെയും ശ്രേഷ്ഠമായ പ്രവൃത്തിയിലൂടെയും സ്നേഹത്തിന്റെയും സാഹോദര്യ ത്തിന്റെയും ഒരുമയുടെയും പ്രകാശം പരത്താൻ ദീപങ്ങളുടെ ഉത്സവം നമ്മെ പ്രചോദിപ്പിക്കട്ടെ എന്ന് ഗവർണർ ആശംസസന്ദേശത്തിൽ പറഞ്ഞു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജന്നങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന മൻ കി ബാത് റേഡിയ്ക്ക് പരിപാടി ദീപാവലിദിവസമായനാളെ പ്രക്ഷേപണം ചെയ്യും ദ്ദീപ്പാപ്പലി സുരക്ഷിതമായി ആഘോഷിക്കാൻ കഴിഞ്ഞ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി ജനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു

ഹിന്ദി പ്രക്ഷേപണത്തിനു തൊട്ടു പിന്നാലെ എല്ലാ പ്രാദേശിക ഭാഷകളിലും മൻ കി ബാത്തിന്റെ പ്രക്ഷേപണം ഉണ്ടാകും

ന്യൂഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള കൂട്ടയോട്ടം ആഭ്യന്തരമന്ത്രി അമിത്ഷാഉദ്ഘാടനം ചെയ്യും

നിത്രി ആയോഗ് പ്രഭാഷണ പരമ്പരയുടെ അഞ്ചാമത്തെ സമ്മേള്സ്ത്തിന് ഇന്ത്യയിലെത്തിയ തായിരുന്നു ഡേവിഡ്

പാകിസ്ഥാൻ ഭീകരതയ്ക്കെതിരായി പ്രവർത്തിക്കണം

ഭീകരത ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ ചേരിചേരാരാഷ്ട്രങ്ങൾ എല്ലാ സ്വാധീനങ്ങളും ചെലുത്തണമെന്ന് ശ്രീ

ഭീകരവാദത്തെ ചെറുക്കുന്നതിന് അന്താരാഷ്ട്ര നിയമങ്ങളെ കൂടുതൽ ശാക്തീകരിക്കണമെന്നും കാലാനുസൃതമായ പരിഷ്കാര ങ്ങൾ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ജപ്പാനിൽ ഉരുക്ക് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ അന്താരാഷ്ട്ര്ട് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉരുക്കിനുള്ള ആവശ്യങ്ങൾ വർദ്ധിക്കുകയാണ്

ചിരാഗ്ഷെട്ടിയും സത്വിക്സായിരാജ്റങ്കി റെഡ്ഡിയും ഡെൻമാർക്കിന്റെ സഖ്യത്തെയാണ് തോൽപിച്ചത്

സാത്വിക് ചിരാഗ്സഖ്യംഇന്ന് ജപ്പാൻ താരങ്ങളോട്ഏറ്റുമുട്ടും